തമിഴ്നാട്ടിൽ ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ ഗവർണറെക്കണ്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദമുന്നയിച്ചു

മറാത്താ സംവരണവുമായി ബന്ധപ്പെട്ട ഹർജി തള്ളി

വിധി പുനപരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്ന് ഭരണഘടനാ ബഞ്ച് ഏകകണ്ഠമായി തീരുമാനിക്കുക്യായിരുന്നു

സംസ്ഥാനത്ത് അതീവ ഗുരുതരമായ സാഹചര്യമെന്നും നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ

പഠനം കഴിഞ്ഞ മെഡിക്കൽ വിദ്യാർഥികളെ താത്കാലിക രജിസ്ട്രേഷൻ നൽകി കൊവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്തവരും ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

മുനമ്പം ഹാർബർ പൂർണമായി അടച്ചിടും ഓക്സിജൻ ലഭ്യതയിൽ നിലവിൽ വലിയ പ്രശ്നങ്ങളില്ലെന്നും സ്വകാര്യ ആശുപത്രികളിൽ ആവശ്യത്തിനു ഓക് സിജൻ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി

പുതുതായി തിരഞ്ഞെടുക്കണ്ണപ്പെട്ട എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെയും മറ്റന്നാളൂർ ് രണ്ട് ഘട്ടങ്ങളായി നിയമസഭയിൽ നടക്കും

അതിനിടെ തെരഞ്ഞെടുപ്പിന് ് ശേഷം ബംഗാളിൽ നടന്ന വ്യാപക അക്രമ സംഭവങ്ങളിൽ ഫ്രിൽഷേധിച്ച് ബി ജെ

സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് തുടക്കമാകും

അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് സർക്കാർ അധികാരമേൽക്കാനാണ് സാധ്യത സത്യപ്രതിജ്ഞക്ക് മുമ്പ് തന്നെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് വ്യക്തത വരുത്താനാണ് നാളെ മുതൽ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കുന്നത്

ഈ മാസം ഏഴാം തീയതി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഡിഎംകെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആർ

കൂടുതൽ വിവരങ്ങളുമായി ജോസ്ന

പ്രത്യേക കോവിഡ് ആനുകൂല്യമായി നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ വാക്സിൻ നിർമാതാക്കൾ ആശുപത്രികൾ മറ്റു മെഡിക്കൽ സംവിധാനങ്ങൾ കോവിഡ് രോഗികൾ എന്നിവയ്ക്ക് പ്രയോജനം ലഭിക്കും

അതേസമയം വിദേശകാര്യമന്ത്രി എസ്

സ്വയംനിരീക്ഷണത്തിൽ പ്രവേശിച്ച സാഹചര്യത്തിൽ വിദേശകാര്യമന്ത്രി വെർചൽ ആയാണ് യോഗത്തിൽ പങ്കെടുക്കുക

ഇത് സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും പ്രദേശങ്ങളിലെ കേന്ദ്രഭരണ അഡ്മിനിസ്റ്റർമാർക്കും നിർദ്ദേശം നൽകി